ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും ദൂരദർശൻ ചാനലുകളും പരിപാടി സംപ്രേഷണം ചെയ്യുന്നുണ്ട്

ചെന്നൈയിൽ നാനി പാൽക്കിവാല ശതാബ്ദി പ്രഭാഷണം നടത്തുകയായിരുന്നു ധനമന്ത്രി അഞ്ചു ബില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥ കൈവരിക്കുക എന്ന ലക്ഷ്യം കേവലം ചിന്ത മാത്രമല്ല പ്രായോഗികവുമാണെന്ന് അവർ പറഞ്ഞു പരിവർത്തനാത്മകമായ വളർച്ചയിലാണ് മോദി ഗവൺമെന്റ് വിശ്വസിക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു ദരദ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടിക പുതുക്കാൻ കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും

ദേശ സംസ്ഥാനത്ത് കാരുണ്യ വഴി മരുന്ന് വിതരണം പൂർണമായും നിലച്ചതോടെ ഹീമോഫീലിയ രോഗികൾ മരണഭീതിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഹീമോഫീലിയ ബാധിതരുടെ ജീവൻരക്ഷാ മരുന്നിന് കടുത്ത ക്ഷാമം നേരിടുകയാണെന്നും ഇത് ഗവൺമെന്റ് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അദ്ദേഹം ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു കാരുണ്യപദ്ധതി നിർത്തലാക്കിയതോടെ ഹീമോഫീലിയ രോഗികകളും വൃക്ക മാറ്റി വെച്ച ശേഷം തുടർചികിൽസ തേടുന്നവരും നിരാലംബരായി മാറുന്നുവെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി ദേദ ലഹരിക്കടത്തുകേസുകളിൽ പിടിക്കപ്പെടുന്നവരിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന തൊഴിലാളികളുണ്ടെന്നും അത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി ടി പി രാമക്യഷ്ണൻ പറഞ്ഞു ഇതരസംസ്ഥാന തൊഴിലാൾക്കായി തൊഴിൽവകുപ്പും കോഴിക്കോട് കോർപ്പറേഷനും ഗവ നഴ്സിംഗ് കോളെജും സംയുക്തമായി ചെറുവണ്ണൂരിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അതേസമയം ഇത്തരം സംഭവങ്ങൾ പെരിപ്പിച്ചുകാണിച്ചു തൊഴിലാളികളെ ആകെ കുറ്റപ്പെടുത്തുന്ന പ്രവണതയുണ്ടായി കൂടായെന്നും മന്ത്രി പറഞ്ഞു ദദദ സംസ്ഥാനത്തെ എല്ലാ ക്ഷേത്രങ്ങൾക്കും പരമാവധി അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റെന്ന് മന്ത്രി കടകംപളളി സുരേന്ദ്രൻ പറഞ്ഞു ക്ഷേത്രത്തിന്റെ വരുമാനത്തിൽനിന്നും ഒരു പൈസ പോലും ഗവൺമെന്റ് എടുക്കുന്നില്ലെന്നും അദ്ദേഹം അറിയിച്ചു സംസ്ഥാന വിനോദ സഞ്ചാര വകുപ്പ് നാലു കോടി രൂപ മുടക്കി എറണാകുളം ജില്ലയിലെ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന അമിനിറ്റി ആന്റ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി

ദേദ സംസ്ഥാനത്ത് പാൽ ഉത്പാദനം വർധിപ്പിക്കാൻ ക്ഷീരകർഷകർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു

അത് നൂറു ശതമാനം എത്തിക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു കൊല്ലം ആനയടിയിൽ മിൽമ ഗ്രാമോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ദിവാകരൻ എം

തിരുവനന്തപുരത്ത് വി

രാജേഷും കൊല്ലത്ത് ബി ബി ഗോപകുമാറും പത്തനംതിട്ടയിൽ അശോകൻ കുളനടയും ആലപ്പുഴയിൽ എം

ഗോപകുമാറും ഇടുക്കിയിൽ കെ എസ് അജിയുമാണ് പുതിയ പ്രസിഡന്റുമാർ തൃശൂരിൽ കെ

അനീഷ്കുമാറും പാലക്കാട്ട് ഇ കൃഷ്ണദാസും മലപ്പുറത്ത് രവി തേലത്തും കോഴിക്കോട്ട് വി

സജീവനും വയനാട്ടിൽ സജി ശങ്കറും പ്രസിഡന്റുമാരാകും രദേശ ബി ജെ പി ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ നാമനിർദ്ദേശപത്രികാ സമർപ്പണം ഇന്ന് നടക്കും ഒന്നിലധികം പേർ നാമനിർദ്ദേശപത്രിക സമർപ്പിച്ചാൽ നാളെ വോട്ടെടുപ്പ് ഉണ്ടാകും ബി ജെ പി വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദയെ പുതിയ പ്രസിഡന്റായി എതിരില്ലാതെ തെരഞ്ഞെടുത്തേക്കും രദേശ മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിൽ ഓസ്ട്രേലിയയെ ഏഴു വിക്കറ്റിന് തോല്പിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി

സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ കളിയിലെ താരമായി ക്യാപ്റ്റൻ വിരാട് കോഹ് ലിയാണ് പരമ്പരയിലെ താരം

നാളെ ജപ്പാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം ദരദ ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി ജംഷഡ്പൂരിൽ നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്നു ഗോളുകൾക്കാണ് ജംഷഡ്പൂർ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്തായി

അടുത്ത ശനിയാഴ്ച ഗോവയ്ക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ദേദ ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സി ഇന്ന് പഞ്ചാബ് എഫ് സിയെ നേരിടും ലുധിയാനയിൽ ഉച്ചയ്ക്ക് രണ്ടിനാണ് ക്വിക്കോഫ്

ആറു കളിയിൽ നിന്ന് പത്ത് പോയിന്റ് നേടിയ ടീം നാലാം സ്ഥാനത്താണ് രദേശ പാലക്കാട് ഫുട്ബോൾ മത്സരത്തിനിടെ താൽക്കാലിക ഗാലറി തകർന്ന് വീണ് അൻപതോളം പേർക്ക് പരിക്കേറ്റു കളിക്കളത്തിൽ അന്തരിച്ച ഫുട്ബോൾ താരം ധനരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ സംഘടിപ്പിച്ച മത്സരം തുടങ്ങുന്നതിനു മുൻപ് ഇന്നലെ വൈകീട്ട് എട്ടര മണിയോടെയായിരുന്നു അപകടം പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

മുൻ ഇൻഡ്യൻ താരങ്ങളായ ഐ

വിജയൻ ബൈചുങ് ബൂട്ടിയ എന്നിവരുടെ നേത്വത്വത്തിൽ ടീമുകളുടെ മത്സരമാണ് സംഘടിപ്പിച്ചിരുന്നത് ദർദ കോഴിക്കോട്ട് സമാപിച്ച സംസ്ഥാന സബ് ജൂനിയർ സോഫ്റ്റ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാടും ജേതാക്കളായി ആൺകുട്ടികളിൽ തൃശൂരും പെൺകുട്ടികളിൽ മലപ്പുറവും രണ്ടാം സ്ഥാനം നേടി ദേദ സംഗീതനാടക അക്കാദമി ഒരുക്കുന്ന പന്ത്രണ്ടാമത് രാജ്യാന്തര നാടകോത്സവത്തിന് ഇന്ന് തൃശൂരിൽ അരങ്ങുണരും റീജണൽ തിയറ്ററിൽ വൈകിട്ട് അഞ്ചിന് മന്ത്രി എ കെ ബാലൻ നാടക മേളക്ക് തിരി തെളിക്കും ഇമാജിൻ കമ്മ്യൂണിട്ടീസ് അഥവാ സാങ്കല്പിക സമൂഹങ്ങൾ എന്നതാണ് നാടകമേളയുടെ ഇത്തവണത്തെ പ്രമേയം

മലയാളത്തിലെ യുവ കവികളുടെ കവിത ആലാപനസദസ്സ് ഇത്തവണ നാടകോത്സവത്തോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് നാടക സെമിനാറുകൾ പെർഫോമിംഗ് പോയട്രി ഡോക്യുമെന്ററികൾ എന്നിവയും മേളയുടെ ഭാഗമാകും ലളിതകലാ അക്കാദമി ആണ് സംഗീത നാടക അക്കാദമിയിൽ നാടക ഉത്സവത്തിന്റെ സൌന്ദര്യവൽക്കരണവും പശ്ചാത്തലവും ഒരുക്കുന്നത് ദേദ കണ്ണൂർ സർവകലാശാല കലോത്സവത്തിൽ പയ്യന്നൂർ കോളേജിന് കിരീടം കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് രണ്ടാം സ്ഥാനവും തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് മൂന്നാം സ്ഥാനവും നേടി സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു

ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റില്ലാതെ സർവ്വീസിന് അനുമതി നൽകുന്നതിൽ പ്രതിഷേധിച്ചാണ് അർദ്ധരാത്രി സമരം ആരംഭിച്ചത് ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് ഇലക്ട്രിക് ഓട്ടോകൾക്കെതിരെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പണിമുടക്കുന്നത് ദേദ ഇടുക്കി കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സിറാണി രാജേന്ദ്രൻ നിര്യാതയായി

രുഭ ഇടുക്കി ജില്ലാതല ലൈഫ് മിഷൻ ഗുണഭോക്ത സംഗമം മന്ത്രി എം എം മണി ഉദ്ഘാടനം ചെയ്തു ഭൂരഹിതരായ ഭവന രഹിതർക്ക് വീട് അനുവദിക്കുന്നതിന് സ്ഥല പരിമിതിയാണ് ഗവൺമെന്റ് അഭിമുഖികരിക്കുന്ന പ്രധാന പ്രശ്നമെന്ന് മന്ത്രി പറഞ്ഞു

ദേദ പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കിയ നരേന്ദ്രമോദി ഗവൺമെന്റിന് പിന്തണയുമായി ബിജെപി മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സ്ത്രീശക്തി സംഗമം സംഘടിപ്പിച്ചു മഹിളാമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി നിവേദിത ഉദ്ഘാടനം ചെയ്തു ദേദ രാഹുൽഗാന്ധിക്കെതിരെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ ചരിത്രകാരൻ രാമചന്ദ്രഗുഹ നടത്തിയ പരാമർശം അനുചിതവും അപലപനീയവും വസ്തുതാവിരുദ്ധവുമാണെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു